ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ ചർച്ചു ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗൂമായി കൂടിക്കാഴ്ച നടത്തി

ഉദ്യോഗ സ്ഥാനക്കയറ്റങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം ഉറപ്പാക്കാൻ കേന്ദ്രം വിവിധ വകുപ്പുകൾക്കും സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി

രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ജനങ്ങൾക്ക് ഈദ് ആശംസകൾ നേർന്നു

റമദാൻ മാസത്തിൽ ജമ്മു കശ്മീരിലെ സൈനിക നടപടികൾ നിർത്തിവച്ചിരുന്നതിന്റെ വിലയിരുത്തലും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരുന്നു കശ്മീർ താഴ്വരയിലെ നിലവിലെ സാഹചര്യം ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു ജമ്മു കശ്മീരിൽ അടുത്തിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഷുജാത് ബുഖാരി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും ചർച്ചാവിഷയമായി

കേന്ദ്രമന്ത്രിമാരുക്കു് സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ക്ലെർണർമാരും കേന്ദ്ര ഗവൺമെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ ് പങ്കെടുക്കും ദേശീയ വികസന മുൻഗണനകൾ മേഖലകൾ തന്ത്രങ്ങൾ എന്നിവയിൽ സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ഒരു പൊതുവീക്ഷണം വികസിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം നിതി ആയോഗ് ഗവേണിംഗ് കൌൺസിലിൽ നിക്ഷിപ്തമാണ് കൌൺസിൽ യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ

കേന്ദ്ര സഹമന്ത്രി വിഷ്ണു ദിയോ സായ് പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ രാഷ്ട്രപതിയെ അനുഗമിക്കും ഒമ്പത് ദിവസം നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിന്റെ ആദ്യപാദത്തിട്ടൂൽ ഏദൻസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി ഗ്രീക്ക് പ്രസിഡന്റ് പ്രൊകോപ്പിക്ക് പ്യാപ്പ്ലോ പൌലോസ് മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാക്ക്ൾ പ്പ് എന്നിവരുമായി ചർച്ച നടത്തും

ആരോഗ്യം ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകൾ സംസ്ഥാന ഗവൺമെന്റുകൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉദ്യോഗ സ്ഥാനക്കയറ്റങ്ങൾക്ക് സുപ്രീംകോടതി പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്രം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ഉദ്യോഗ സ്ഥാനക്കയറ്റങ്ങളിൽ നിയമപരമായ സംവരണ തത്വവുമായി മുന്നോട്ടു പോകാൻ അടുത്തിടെയാണ് പരമോന്നത കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത്

യു എൻ സുരക്ഷാ കൌൺസിൽ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പ്രതിനിധികൾ മന്ത്രിയുമായി ചർച്ച ന്റട്ടത്തി

സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനവും ഡാമിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനവും സമിതി വിലയിരുത്തി കാലവർഷം കനത്തോടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിലാണ് ഉപസമിതി സന്ദർശനം നടത്തിയത്

ഇന്നലെ രാവിലെ അണക്കെട്ടിലെത്തിയ സംഘം ജലനിരപ്പ് സ്വീപ്പേജ് വെള്ളത്തിന്റെ അളവ് എന്നിവ രേഖപ്പെടുത്തി

സ്പിൽവേയിലെ ആറ് ഷട്ടറുകൾ സമിതി അംഗങ്ങൾ ഉയർത്തി പരിശോധിച്ചു

ഗ്യാലറിയിലേയും തമിഴ്നാട് സ്ഥാപിച്ച ഡാമിലെയും ഉപകരണങ്ങളുടെ പ്രവർത്തനവും സമിതി വിലയിരുത്തി

ഖോവൈ നദി കരകവിഞ്ഞ് ആയിരങ്ങൾ ഭവനരഹിതരാകുകയും റോഡുകളും പാടങ്ങളും നശിക്കുകയും ചെയ്തതോടെയാണ് പൃതിപുരയിൽ വെള്ളപ്പൊക്ക അസമിൽ ന്യൂർവ്വിധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് കെടുതി തീവ്രമായത്

ഡി

രഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

എല്ലാ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ത്യയിലും വിദേശത്തുമുള്ള മുസ്ലീം സഹോദരങ്ങൾക്ക് നന്മകൾ നേരുന്നതായി ശ്രീ രാംനാഥ് കോവിന്ദ് തന്റെ സന്ദേശത്തിൽ പറഞ്ഞു വീവിധ മതവിഭാഗങ്ങൾക്ക് പങ്കുള്ള സമൂഹത്തിൽ ഈദ് ആഘോഷം സാഹോദരൃവും തിരിച്ചറിവും പ്രോത്സാഹിപ്പിക്കാൻ ഇടയാക്കുമെന്ന് രാഷ്ട്രപതി പ്രത്യാശിച്ചു ജനങ്ങൾക്കിടയിൽ സാഹോദര്യത്തിന്റെയും ധാരണയുടെയും പരമ്പരാഗത ആവിഷ്കാരമാണ് ഈദ് ഉൽ ഫിത്തർ സൂചിപ്പിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

ദിദിന സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി ഇന്നലെ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ എത്തിയത് ഇറ്റാനഗറിലെ നോർത്ത് ഈസ്റ്റേൺ റീജണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ ഗവേഷണ പ്രതിഭകളുമായും പ്രൊഫസർമാരുമായും ഉപരാഷ്ട്രപതി ആശയവിനിമയം നടത്തും

ഈ തടവുപുള്ളികൾ ഗ്ലൂർുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവരാകയാൽ അവർക്കുടുംബാംഗങ്ങളോടൊപ്പം ഈദ് ആഘോഷിക്കാൻ അവസരമൊരൂക്ക്ണമെന്ന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽക്കിയിതായി ഔദ്യോഗിക വക്താവ് അറിയിച്ചു

ബെയ്ജിംഗ് ബൌദ്ധിക സ്വത്ത് മോഷണവും അന്യായമായ വ്യാപാര വൃവഹാരങ്ങളും നടത്തുന്നതായി ട്രംപ് ആരോപിച്ചു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വളരെ നാളുകള്ളതി നീതിയുക്തമല്ലെന്നും ഈ സാഹചര്യം ഇനി നിലനിർത്താവുന്നതല്ലെന്നും ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു ബെയ്ജിംഗ് ഇതിൽ പ്രതികാരം ചെയ്താൽ കൂടുതൽ താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് താക്കീത് നൽകി

അതിനിടെ ദേശീയ സുരക്ഷാ പശ്ചാത്തലത്തിൽ കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ അലുമിനിയം ഇറക്കുമതിക്ക് അമേരിക്ക താരിഫ് കുത്തനെ വർധിപ്പിച്ചിരുന്നു

ലോകത്തെമ്പാടുമുള്ള വിജയ്മല്യയുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ഇന്ത്യൻ കോടതികൾ എടുത്ത തീരുമാനം റദ്ദാക്കാൻ ജഡ്ജി ആൻഡ്രു ഹെൻഷാ തയ്യാറായില്ല

പോർച്ചുഗലിന്റെ റൊണാൾഡോ ഹാട്രിക് നേടി